സംസ്ഥാനങ്ങളിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും

കൃാമ്പിനറ്റ് സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി നീതി ആയോഗ് അംഗം ഡോ

ടിദ്ദ്രോ സംസ്ഥാനങ്ങളിലും നടന്നുവരുന്ന കോവിഡ് പ്രതിരോധ്യ കുത്തിവയ്പ്പ് പരിപാടി യോഗം വിലയിരുത്തി

വിശദാംശങ്ങളുമായി മൈത്രി ബി രാജി

എട്ട് ലക്ഷത്തിലധികം പേർ രണ്ടാംഘട്ട വാക്സിൻ സ്വീകരിച്ചതായും ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡൽഹിയിലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എത്തിയാണ് അദ്ദേഹം കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തത് അവസരം ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്നും കോവിഡ് വ്യാപനം മുൻനിർത്തി എല്ലാവരും സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഈ വിഭാഗ്രങ്ങളിലെ അനർഹരായ ചില ഗുണഭോക്താക്കൾ വാക്സിനേഷ്ട്ൻ പ്ട്ടികയിൽ ഇടംപിടിച്ചതായി കണ്ടെത്തിയതിനെ തുടൂർന്നാണ് ഈ തീരുമാനമെന്ന് സംസ്ഥാനങ്ങൾക്കയച്ച കൃത്തീർ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞൂ് അതേസമയം നേരത്തെ രജിസ്റ്റർ ചെയ്ത ആരോഗൃ പ്രവർത്തകർക്കുള്ള വാക്സിൻ കൃതൃമായും നൽകാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

അവശ്യ സർവ്വീസുകൾ ഒഴികെ കടകൾ വ്ട്യാപാര സ്ഥാപനങ്ങൾ ഓഫീസുകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും അടച്ചിടണം രാത്രികാല യാത്രയും നിരോധിച്ചിട്ടുണ്ട്

വനിതകൾ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് സംരംഭം തുടങ്ങുന്നതിന് ബാങ്കുകളിൽ നിന്നും എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി

ബിജാപ്പൂർ ജില്ലയിൽ ഇന്നലെയാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്

വീരമൃത്യു വരിച്ച സുര്ക്ഷാ സേനാംഗങ്ങളുടെ ത്യാഗത്തെ രാഷ്ട്രം ഒരിക്കലും വ്യസ്മരിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു ക്ട്രിന്ദ്ര് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആദരാഞ്ജലികൾ അർപ്പിച്ചു് ർാജ്യത്തിന്റെ സമാധാനത്തിനും പുരോഗതിക്കും തടസ്സം പ്രിൽക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു

തെരച്ചിൽ സുരക്ഷാസേനയുടെ സംയുക്ത സംഘത്തെ മാവോയിസ്റ്റുകൾ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു

മൂന്നാംഘട്ട ്രൂപ്പോട്ടെടുപ്പാണ് ഈ രണ്ടിടങ്ങളിലും ചൊവ്വാഴ്ച നടക്കുന്നത് തെമിഴ്നാട്ടിലെ കന്യാകുമാരി കേരളത്തിലെ മലപ്പുറം എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചൊവ്വാഴ്ച വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നതിന് മുന്നോടിയായി കർശന നിരീക്ഷണമാണ് എല്ലാ ജില്ലകളിലും

പണം മദ്യം ആയുധങ്ങൾ എന്നിവയുടെ കൂട്ടിൽ ഉണ്ടോ എന്നറിയാൻ പ്രത്യേക നിരീക്ഷണം വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനും കേന്ദ്ര സേനക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ദേവാലയങ്ങളിൽ ഇന്നലെ പാതിരാകുർബാനയും ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഈസ്റ്റർ ആഘോഷങ്ങളോടെ വിശുദ്ധ വാരാചരണത്തിനും ഇന്ന് സമാപനം

സ്നേഹത്തിന്റെയും കരുണയുടെയും രക്ഷകനായ യേശുവിന്റെ പാത പിന്തുടർന്ന് സഹജീവികളോട് അനുകമ്പാപൂർവ്വം പെരുമാറാൻ ഉപരാഷ്ട്രപതി എം

ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരള ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമ്പ്രന്തി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും ആശംസകൾ നേർന്നു

സിവിൽ വേഷധാരികളായും എത്തിയ നക്സലേറ്റുകൾ ഡെപ്യൂട്ടി മജിസ്ട്രേട്ടിനു നേരെ പ്ലൂടിയുതിർക്കുകയായിരുന്നു